ഉന്നതരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആശയവിനിമയം നടത്തും

നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മപരിശോധന ഇന്ന്

ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനു മൂന്ന്ോടിയായി തെലങ്കാനയിലെ സ്ഥിതിഗതികൾ മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിലയിരുത്തി

വിദ്യാഭ്യാസമാണ്ണെന്ന് ഉപരാഷ്ട്രപതി എം

ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ഏകദിന ക്രിക്കറ്റ് മൽസരം ഇന്ന് വിശാഖപട്ടണത്ത്

ചടങ്ങിൽ മേം നഹീം ഹം എന്ന വെബ്പോർട്ടലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഐ ടി വിദഗ്ധരെ പരസ്പരം ബന്ധപ്പെടുത്താനാണ് പോർട്ടൽ സജ്ജീകരിച്ചത് സമൂഹത്തിലെ ദുർബലവിഭാഗങ്ങൾക്ക് ഐ ടി സേവനം കൂടുതൽ ലഭ്യമാക്കാനും പോർട്ടൽ വഴിയൊരുക്കും

കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

മുഖ്യമന്ത്രിയും ബി ജെ

മുൻപ്രധാനമന്ത്രി എ

വാജ്പേയിയുടെ അനന്തരവൾ കരുണാ ശുക്ലയാണ് മുഖ്യമന്ത്രിക്കെതിരെ മുത്സ്ത്രിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി

രണ്ടാം ഘട്ടത്തിലേക്കുള്ള വിജ്ഞാപനം വെള്ളിയാഴ്ച പുറപ്പെടുവിക്കും

പി റാവത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെലങ്കാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി

സ്വതന്ത്രവും നീതിപൂർവ്വകവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പു കമ്മീഷണർ നിർദ്ദേശം നൽകി നിലവിലെ തയ്യാറെടുപ്പുകളിൽ അദ്ദേഹം സംതൃപ്തി പ്രകടിപ്പിച്ചു

ബി ഡി

നികുതിദായകരുടെ എണ്ണം ഇപ്പോഴത്തെ നിലയിൽ വർദ്ധിക്കുകയാണെങ്കിൽ നികുതിനിരക്ക് വീണ്ടും കുറയ്ക്കാനാകുമെന്നും ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു

നികുതിവെട്ടിപ്പുകാരെ വെറുതെ വിടില്ല

ന്യൂഡൽഹിയിൽ ജാമിയ ഹംദർദ് സർവ്വകലാശാലയുടെ പതിമുന്നാമത് ബിരുദ ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഗോള തൊഴിൽ വിപണിയിൽ മത്സരിക്കുന്നതിനായി പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസത്തിനൊപ്പം തൊഴിൽ വൈദഗ്ധ്യവും ഉറപ്പാക്കണം സർവ്വകലാശാലകൾ അടക്കമുള്ള പൊതുയിടങ്ങൾ സൌരോർജ്ജത്തെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തണമെന്നും മഴവെള്ള സംഭരണം ഉറപ്പാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും തന്ത്രപര്യൂമായ് സൌഹൃദം ശക്തമാക്കാനുള്ള മാർഗങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു ഉഭയകക്ഷിബന്ധം ഇരുജനതയ്ക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ വികസിപ്പിക്കാൻ സന്നദ്ധമാണെന്ന് ഇരു സ്മേതാക്കളും ടെലിഫോൺ വഴിയുള്ള ചർച്ചയിൽ പറഞ്ഞു

ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വച്ചായിരുന്നു കൂടിക്കാഴ്ച തിങ്കളാഴ്ച ഇരുനേതാക്കളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിങ്ങുമായി ചർച്ച നടത്തിയിരുന്നു ഇരുരാജ്യങ്ങളും തമ്മിൽ സുരക്ഷാമേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവച്ചു

മുഴുവൻ അനധികൃത ബോർഡുകളും നീക്കണമെന്നും ഇവ നീക്കിയില്ലെങ്കിൽ ചെലവും നഷ്ടവും ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കുമെന്നും ഹൈക്കോടതി പറഞ്ഞു

ഇതു സംബന്ധിച്ച് ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

വൈകിട്ട് ഏഴ് മുതൽ തുടർച്ചെ ആറ് മണിവരെ സ്ത്രീകള്ള ജോലി ചെയ്യിപ്പിക്കരുതെന്ന നിലവിലെ വ്യവസ്ഥയിൽ മാറ്റം പ്രുത്തിയിട്ടുണ്ട് മതിയായ സുരക്ഷ താമസസ്ഥലത്തേക്കുള്ള യാത്രാസൌകര്യം എന്നിവ ഒരുക്കിയാൽ സ്ത്രീകളുടെ അനുവാദത്തോടെ ഈ സമയത്തും ജോലിക്ക് നിയോഗിക്കാം നിയമത്തീള്ള് വൃവസ്ഥകൾ ലംഘിക്കുന്ന തൊഴിലുടമകൾക്കുള്ള പിഴ് അയ്യായിരം രൂപയിൽ നിന്ന് ഒരു ലക്ഷമാക്കി നിയമലംഘനം ആവർത്തിക്കുന്നവരിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ വരെ പിഴ ഈടാക്കും നിയമഭേദഗതികൾ പ്രാബല്യത്തിലാക്കാൻ ഉദ്യോഗസ്ഥർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി റ്റി

മരണകാരണം കണ്ടെത്താൻ ആന്തരിക അവയവങ്ങൾ പരിശോധിക്കുമെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചു

പരമ്പരയിലെ മറ്റ് മൂന്ന് മത്സരങ്ങൾ പുനെ മുംബെ തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് നടക്കുന്നത്

ടൂർണമെന്റിൽ ഇതുവരെ തോൽവിയറിഞ്ഞിട്ടില്ലാത്ത ഇന്ത്യയും മലേഷ്യയും സെമിഫൈനലിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്

ഗോൾ ശരാശരിയിൽ ഇന്ത്യയ്ക്ക് പിന്നിലാണ് മലേഷ്യ ഒമാൻ പാകിസ്ഥാൻ ജപ്പാൻ എന്നീ ടീമുകളെ പരാജയപ്പെടുത്തിയ ഇന്ത്യയുടെ അടുത്ത മത്സ്ത്രം ഇന്ന് ദക്ഷിണ കൊറിയക്കെതിരെയാണ് മലേഷ്യ നാളെ പ്പാക്രിസ്ഥാനെ നേരിടും

കഴിഞ്ഞ മേയിൽ നിലവിൽ വന്ന പുതിയ പ്രതിരോധ സഹകരണ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലാണ് പ്രതിരോധമന്ത്രി നിർമ്മല സീതാരാമനും ഇന്തോനേഷ്യൻ പ്രതിരോധിമന്ത്രി ജനറൽ റിയാമിസാർഡ് റൈകുഡുവും കൂടിക്കാഴ്ച നടത്തിയത് രാഷ്ട്രീയ സാമ്പത്തിക വ്യാപാര രംഗങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാട്ടി

അഫ്ഗാനിസ്ഥാനിൽ അനുരഞ്ജനമാണ് ഏവരും ആഗ്രഹിക്കുന്നതെന്നും ഇതിന് ഭീകരർക്ക് പാകിസ്ഥാനിലുള്ള സുരക്ഷിത താവളങ്ങൾ തകർക്കണമെന്നും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക് പോംപിയോ പറഞ്ഞു